വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് സമാപിക്കും വോട്ടെടുപ്പ് ഞായറാഴ്ച

ഒഡീഷയിൽ ഫോനി ചുഴലിക്കാറ്റ് നാശം വിതച്ച ന് പുരി ഭുവനേശ്വർ കട്ടക്ക് കേന്ദ്രപ്പാറാ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം

ഇന്ത്യയും വിയറ്റ്നാമും

ക്യാപ്പിറ്റൽസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും

പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ ദേശീയ നേതാക്കൾ അവാസന ദിനത്തിലെ പരസ്യ പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ രോഹ്ത്തക്കിലും ഹിമാചൽപ്രദേശിലെ മണ്ഡിയിലും പഞ്ചാബിലെ ഹോഷിയാർപൂരിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഹിസ്സാറിലെ ബാർവാലയിലും ഹരിയാനയിലെ ചാർഖി ദാദ്രിയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു കോൺഗ്രസ് അധൃക്ഷൻ രാഹുൽഗാന്ധി ഹിമാചൽ പ്രദേശിലും ചണ്ഡിഗഡിലും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ്

കഴിഞ്ഞ വോട്ടെടുപ്പുകളിൽ അക്രമസംഭവങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം

ബോബ്ഡെ ഡി

ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ എസ്

മുന്നംഗ മാധ്യസ്ഥ സമിതിയുടെ ആവശ്യപ്രകാരമാണ് പരമോന്നത കോടതി പ്രശ്നപരിഹാരത്തിന് സമയം നീട്ടിനൽകിയത് സമിതിയുടെ നിർദ്ദേശം രാവിലെ ചേർന്ന കോടതി പരിഗണിക്കുകയായിരുന്നു

കേസ് രമ്യമായി പരിഹരിക്കാൻ കോടതി നേരത്തെ മധ്യസ്ഥതയ്ക്ക് വിട്ടിരുന്നു

എട്ട് ആഴ്ചക്കുള്ളിൽ ചർച്ചനടത്തി ഫലമറിയിക്കണമെന്നായിരുന്നു സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത്

പ്രിഫോനി ചുഴലിക്കാറ്റിൽ നാശം വിതച്ച പുരി ഭുവനേശ്വർ കീട്ട്ക്ക് കേന്ദ്രപ്പാറാ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം

പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ശ്രീ നായിഡു പറഞ്ഞു

അംഷിപ്പോറ രാംനഗരി മേഖലയിൽ പുലർച്ചെയായിരുന്നു ഏറ്റുമുട്ടൽ

ഇക്കാരൃത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടർ അദ്ധ്യക്ഷനായ സമ്പിതിയാണ്ണെന്നും ഹൈക്കോടതി വിലയിരുത്തി തൃശൂർ പൂരത്തിന്റെ ഭാഗ്രമായ് തെക്കോട്ടിറക്കത്തിന് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാൻ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രനെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് നെയ്തലക്കാവ് ദേവസ്ഥാ ഹൈക്കോടതിയെ സമീപിച്ചത്

ഈ മൽസരത്തിലെ വിജയി ഞായറാഴ്ച ഹൈദരാബാദിൽ നടക്കുന്ന ഹൈനലിൽ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും ബുധനാഴ്ച നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ ഡൽഹി ഹൈദരാബാദിനെ രണ്ട് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു

ഹോംഗ്കോങിന്റെ യൂഡിസ്റ്റ് ചോംഗാണ് ഇന്ന് നടക്കുന്ന കാർട്ടറിൽ അങ്കിതയുടെ എതിരാളി

ഇതനുസരിച്ച് ഇരു രാജ്യങ്ങളും വിപണി സൌകര്യം വർദ്ധിപ്പിക്കും

ഇന്ത്യയിലെ മുളക് ഉല്പന്നങ്ങൾക്ക് ചൈനയിൽ വിപണി ലഭ്യമാക്കുന്നതിനുള്ള കരാറിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവച്ചു കേന്ദ്ര വാണിജ്യ സെക്രട്ടറി അനൂപ് വാധ്യാനം ചൈനീസ് കസ്സംസ് വാണിജ്യ ഉപമന്ത്രി ലീഗുവോയും തമ്മിലാണ് കരാറിൽ ഒപ്പുവച്ചത് വ്യാപാര രംഗത്ത് നിലനിൽക്കുന്ന തടസ്സങ്ങൾ നീക്കാനുളള മാർഗ്ഗങ്ങളും ചർച്ച ചെയ്തു നിരവധി കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് ഇതിന് പ്രിക്ക്ചനയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് ചർച്ചയിൽ ഇന്ത്യ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ തുടർ ്ചിർച്ച നടത്തും സന്തുലിത വ്യാപാരം ഉറപ്പാക്കാൻ ഇരു രാഷ്ട്രങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്നും ഗവൺമെന്റ് തലത്തിൽ കൂടിയാലോചനകൾ ഉണ്ടാവുമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി

അഞ്ചുപേർക്ക് പരിക്കേറ്റു അഞ്ചുപേരെ രക്ഷപ്പെടുത്തി താനെക്ക് സമീപം ധോക്ലായിലായിരുന്നു സംഭവം

ജപ്പാനിലെ മിയാസാക്കി മേഖലയിലായിരുന്നു ഭൂചലനം

സുരക്ഷയുടെ പേരിൽ അഭയാർത്ഥികളെ പുറത്താക്കാൻ ശ്രമിക്കരുതെന്നും ആവശ്യപ്പെട്ടു സംഘടനകൾ ഭൂവുടമകൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് നിരവധി നിരപരാധികൾ സുരക്ഷാ പ്രശ്നത്തിൽ തെരുവിലാകുകയാണെന്നും സംയുക്ത പ്രസ്താവനയിൽ മനുഷ്യാവകാശ സംഘടനകൾ പറഞ്ഞു